സിറിയയിലെ കുർദ്ദ് ഭീകരരുമായി അനുരഞ്ജന ചർച്ചയ്ക്കില്ലെന്ന് ടർക്കി

ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചറി നേടുന്ന ലോകത്തെ ഏറ്റവും പ്രായം കൂറഞ്ഞ കളിക്കാരൻ എന്ന ബഹുമതി മുംബൈക്കാരൻ യശസി ജയ്സ്വാളിന്

കേസിൽ സുപ്രീം കോടതി അടുത്തമാസം വിധി പറയും

മാധ്യസ്ഥം സംബന്ധിച്ച വിഷയത്തിൽ കുറിപ്പ് നൽകാൻ മൂന്ന് കക്ഷികളോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അയോധ്യയിലെ തർക്ക ഭൂമി ബന്ധപ്പെട്ട മൂന്ന് കക്ഷികൾക്കും തുല്യമായി വീതിച്ച് നല്കണമെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധിച്ചിരുന്നത്

എക്സ് മീഡിയ അനഗ്ഗികൃത് പണമിടപാട് കേസിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി

നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ചിദംബരത്തെ ഹാജരാക്കണമെന്ന് ജയിൽ അധികൃതരോട് കോടതി നിർദ്ദേശിച്ചു

ബി ഐ ഫയൽ ചെയ്ത ഐ

എക്സ് അഴിമതിക്കേസിൽ ചിദംബരം ഇപ്പോൾ ജയിലിലാണ് ജയിലിൽ ചിദംബരത്തെ ചോദ്യം ചെയ്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു ചിദംബരത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മൂന്നംഗ സംഘം രാവിലെയാണ് തിഹാർ ജയിലിലെത്തി ചിദംബരത്തെ ചോദ്യം ചെയ്തത് ചിദംബരത്തെ ചോദ്യം ചെയ്യാൻ ഡൽഹി കോടതി ഇന്നലെ എൻഫോഴ്സമെന്റിന് അനുമതി നൽകിയിരുന്നു

ഒരു സൈനികന് പരിക്കേറ്റു

പ്രദേശത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തീവ്രവാദികൾ നുഴഞ്ഞ് കയറിയതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേനകൾ സംയുക്ത സൈനിക നടപടി ആരംഭിച്ചത്

ഷോപ്പിയാൻ ജില്ലയിലെ സിന്ധു ഷിർമൽ ഗ്രാമത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ട്രക്ക് ഡ്രൈവറെ ഭീകരർ വെടിവച്ച് കൊലപ്പെടുത്തി രണ്ട് ദിവസത്തിന് ശേഷമാണ് അടുത്ത കൊലപാതകം നടന്നത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള തൊഴിലാളിയാണ് കൊല്പപ്പെട്ടത്

നല്ല ഭക്ഷണം നല്ല ആരോഗ്യം പ്രചാരണം വലിയ വിജയമായിരുന്നുവെന്ന് മന്ത്രിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യവെ പ്രറ്റഞ്ഞു ആഹാരത്തിൽ നെയ്യ് ഉപ്പ് എന്നിവയുടെ അളവ് കുമയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം എട്ടിന് ഇടനാഴി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

പാകിസ്ഥാനിലെ കർതാർപൂർ ദർസാർസാഹിബും പഞ്ചാബിൽ ഗുരുദാസ്പൂർ ജില്ലയിലെ ദേരാബാബ നാനാക് ദേവാലയവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കർതാർപൂർ ഇടനാഴി കർതാർപൂർ സന്ദർശിക്കാൻ പാസ്പോർട്ട് ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് പറഞ്ഞു

എന്നാൽ നിരക്ക് ഒഴിവാക്കാൻ പാക് ഗവൺമെൻുമായി കൂടിയാലോചന നടത്തി വരികയാണെന്ന് അഡീഷണൽ സെക്രട്ടറി അറിയിച്ചു

ഇന്ത്യൻ തീർത്ഥാടകർക്ക് വിസയില്ലാതെ തന്നെ കർത്താർപൂർ സന്ദർശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ത്രീകൾക്ക് മനുഷ്യാവകാശം നിഷേധിച്ചതിനെപ്പറ്റി ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ലെന്ന് അവർ പറഞ്ഞു

നൈപുണ്യ വികസനത്തിനാണ് ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നതെന്നും ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ഇന്ന് മൂന്ന് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു

മഹാരാഷ്ട്രയിലെ അകോളയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കശ്മീരിൽ സമാധ്യനം നിലനിർത്താനുള്ള യത്നങ്ങളിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ്നിരവധി സൈനികർ ജീവത്യാഗം വരിച്ചിട്ടുണ്ട്

ജലസംരക്ഷണ പരിപാടികൾ ശ്രദ്ധേയമാണെന്ന് ശ്രീ

കാർഷിക തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആവിഷ്ക്കരിച്ച് നടപ്പാക്കി വരികയാണെന്നും ശ്രീ

ജെ

നേതാവ് ഗോപാൽ ഭാർഗവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തു

മുംബൈയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഈ പ്രവണത രാജ്യത്തെ വികസന ചെലവിനെ ബാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിൽ നിയമ വിദ്യാർഥികളുമായി പറഞ്ഞു

അദ്ദേഹം ഇക്കാര്യം ജനാധിപത്യത്തിന്റെ ശാക്തീകരണം ജനങ്ങളുടെ കൈകളിലാണെന്നും വോട്ട് ചെയ്യുക എന്നത് അവകാശം മാത്രമല്ല കടമ കൂടിയാണെന്നും ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു

രാജ്യത്ത് ആദ്യമാണ് മറ്റേണിറ്റി ബെനഫിറ്റ് നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് അൺ സ്കൂൾ അധ്യാപകരെ ഉൾപ്പെടുത്തി ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്

ശൈലജയും അയർലന്റ് ഇന്ത്യൻ അംബാസഡർ സന്ദീപ് കുമാറും തിരുവനന്തപുരത്ത് ചർച്ച നടത്തി

വെടിനിർത്തൽ വേണമെന്ന യു